കോവിഡ് പ്രതിരോധത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും രാജ്യത്തെ സാഹചര്യങ്ങളും വീഡിയോ കോൺഫറൻസിൽ വിലയിരുത്തും ഒഡീഷയും പഞ്ചാബും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ലോക്ഡൌൺ കാലാവധി നീട്ടിയിട്ടുണ്ട്

ഒറ്റയടിക്ക് ലോക്ഡൌൺ പിൻവലിക്കാനാവില്ലെന്ന് നേരത്തെ പ്രധാനമന്ത്രിയും സൂചന നൽകിയിരുന്നു യോഗത്തിന് മുന്നോടിയായി ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉന്നതാധികാര സമിതികളിൽ നിന്നും കോവിഡ് സംബന്ധിച്ച സ്ഥിതി വിവര കണക്കുകളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവലോകനം ചെയ്തു ടെടി രാജ്യത്ത് കോവിഡ് സാമുഹ്യ വ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി

രോഗവ്യാപന നിരക്ക് സൂചിപ്പിക്കുന്നത് ഇതുവരെ സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണെന്ന് ആരോഗ്യമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ലവ അഗർവാൾ പറഞ്ഞു

കാസർകോട് ജില്ലയിൽ മൂന്ന് പേർക്കും കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ രണ്ട് പേർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലെ രണ്ട് പേരും നിസാമുദ്ദീൻ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയവരാണ്

ഇവരിൽ എട്ട് വിദേശികളും ഉൾപ്പെടുന്നു

ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകളില്ല

എറണാകുളം ജില്ലയിൽ തുടർച്ചയായി ആറാം ദിവസവും ഒരാളിൽപോലും കോവിഡ് രോഗബാധ കണ്ടെത്തിയില്ല

ടെഴ ഇടുക്കിയിൽ തുടർച്ചയായ ആറാം ദിവസവും പുതിയ കോവിഡ് രോഗികളിലില്ല

മൂന്ന് പേരുടെ പരിശോധനാഫലം തുടർച്ചയായി നെഗറ്റീവായിട്ടുണ്ട് മൂന്നാറിൽ അനിശ്ചിതകാലത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കോവിഡ് പെരുകുന്ന സാഹചര്യത്തിൽ അതിർത്തി ചെക്പോസ്റ്റുകളിലും സമാന്തര വനപാതകളിലും നിരീക്ഷണവും ജാഗ്രതയും ശക്തമാക്കി കോട്ടയം ജില്ലയിൽ ഒരാളെ വീണ്ടും മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി വ്യാഴാഴ്ച ജില്ലയിൽ ആരും ആശുപത്രി നിരീക്ഷണത്തിൽ ശേഷിച്ചിരുന്നില്ല

വയനാട് ജില്ലയിൽ തുടർച്ചയായി പതിനൊന്നാം ദിവസവും കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല

ടെടി കാസർകോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച മൂന്നുപേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

ജഗന്നിവാസൻ നൽകുന്ന റിപ്പോർട്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ

സുരേഷ്ബാബു

കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം അർഹതപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കും ടെടി കർഷകർക്ക് കൃഷി നടത്താൻ സൌകര്യങ്ങളൊ രുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു

എറണാകുളത്ത് ഇടപ്പള്ളിയിലും വയനാട്ടിൽ കൽപ്പറ്റ കൈനാട്ടിയിലുമാണ് ഇതിന് സൌകര്യമൊരുക്കിയിരിക്കുന്നത്

യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷത്തിന്റെ ഒരുക്കത്തിലാണ് ദേവാലയങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും

ലോക്ഡൌൺ സാഹചര്യത്തിൽ വൈദികർ മാത്രമാണ് കുർബാനയടക്കം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ടെട്ട ക്ഷേമ പെൻഷനുകളുടെ രണ്ടാംഗഡു ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറുന്നത് ഇന്ന് പൂർത്തിയാകുമെന്ന് മന്ത്രി ഡോ

ടെട്ട ഓപ്പറേഷൻ സാഗർറാണിയുടെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ ഉപയോഗശൂന്യമായ പതിനൊന്നേമുക്കാൽ ടണ്ണിലേറെ മത്സ്യം പിടികൂടി നശിപ്പിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

ആറ് പേർക്ക് നോട്ടീസ് നൽകി ടെട പ്രശസ്ത കലാ സംവിധായകൻ തിരുവല്ല ബേബി അമേരിക്കയിലെ സ്റ്റാറ്റൻ ഐലൻഡിൽ നിര്യാതനായി